റെയ്സിന സമ്മേളനം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമങ്ങളോട് പ്രധാനമന്ത്രി

ഇന്ത്യാ ചൈന ഉഭയക്കിക്ഷി വൃാപാരം സുസ്ഥിര വളർച്ച നേടി

ഉജ്ജ്വല വിജയം

ലോകം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് കാര്യക്ഷമമായി ചർച്ച ചെയ്യുന്ന വേദിയായി റെയ്സിനാ സമ്മേളനം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ട്വിറ്ററിലൂടെ അറിയിച്ചു ഇന്ത്യയുമായി ഊഷ്മളബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാഷ്ട്രത്തലവൻമാരുമായി കൂടിക്കാഴ്ച നടത്താൻ റെയ്സിനാ സമ്മേളനത്തിൽ സാധിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകം നേരിടുന്ന സുപ്രധാന വെല്ലുവിളികളെക്കുറിച്ച് ഏഴ് മുൻ രാഷ്ട്രത്തലവന്മാർ സമ്മേളനത്തിൽ ആശയങ്ങൾ പങ്കുവച്ചു വിദേശകാര്യ മന്ത്രാലയവും ഒബ്സർവർ റിസർച്ച് ഫൌണ്ടേഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

ഇറാൻ വിദേശകാര്യ മന്ത്രി മുഹമ്മദ് ജവാദ് സാരിഫും അഞ്ചാമത് റെയ്സിന ഡയലോഗിൽ പങ്കെടുക്കും

രാജ്യത്തെ ഏകദ്ദേശ്ര രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്താഴ്ക്കളും പരിപാടിയുടെ ഭാഗമാകും സമ്മർദ്ദത്തെ അതിജീവിച്ച് പരീക്ഷയെ എങ്ങനെ നേരിടാം എന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് പരീക്ഷാ പേ ചർച്ചയിലെ പ്രധാന ഭാഗം

രാജ്യത്തിന്റെ ശുചിത്വ യജ്ഞത്തിന്റെ വിജയത്തിനും പ്ലാസ്റ്റിക് മുക്ത സമൂഹത്തിനായും മാധ്യമങ്ങൾ നൽകുന്ന സംഭാവനയെ പ്രധാനമന്ത്രി സംഭാഷണത്തിനിടെ ശ്ലാഘിച്ചു നൈതികമായ മാധ്യമ പ്രവർത്തനമാണ് എല്ലാ മാധ്യമങ്ങളും പിന്തുടരേണ്ടതെന്ന് പറഞ്ഞ ശ്രീ മോദി ഉത്തരവാദിത്വ മാധ്യമ പ്രവർത്തനത്തിലൂടെ മികവുറ്റ വാർത്തകൾ പൊതുസമൂഹത്തിന് നൽകാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണമെന്നും പ്രത്യേകം ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു മാസികയിലെ ജീവനക്കാരെ ആദരിച്ചു എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുമ്പോഴും വിഷയങ്ങളിലെ നല്ല വശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് യഥാർത്ഥ ജനാധിപത്യത്തിന്റെ ശക്തിയെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടികാട്ടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഐർഐഞ്ഞടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കാ്ര്യക്ഷമമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയ്ക്കാൻ എല്ലാ ഉദ്യോഗസ്ഥരോടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണ്ട് സ്റ്റനിൽ അറോറ ആഹ്വാനം ചെയ്തു

ഇന്നലെ പുറത്തിറക്കിയ ചൈനയുടെ ഔദ്യോഗിക രേഖയിലാണ് ഈ പരാമർശം

ഇന്ത്യയുടെ വ്യാപാര കമ്മി സംബന്ധിച്ച ചോദ്യത്തിന് മറുപടി പറയവേ ചൈനീസ് കസ്റ്റംസിന്റെ പൊതുഭരണ വിഭാഗം ഉപമന്ത്രി സൌഷിവു ഇന്ത്യയിൽ നിന്നും കൂടുതൽ മുന്തിയ ഇനം വസ്തുവകകൾ ചൈന സ്വാഗതം ചെയ്യുകയാണെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ കഴിഞ്ഞ വർഷം നടന്ന അനൌദ്യോഗിക ചർച്ച ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര വർദ്ധനയ്ക്ക് ആക്കം കൂട്ടിയതായി ശ്രീ ഷിവു പ്രത്യേകം എടുത്തു പറഞ്ഞു

ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് വിപുലമായ സുരക്ഷാ സണ്ണാഹങ്ങളാണ് സന്നിധാനത്തും പരിസരത്തും ഒരുക്കിയിട്ടുള്ളത്പു പന്തളത്തു നിന്നും ഘോഷയാര്യിക്കാ്യി വൈകിട്ട് ആറ് മണിയോടെ സന്നിധാനത്ത് എത്തിച്ചേരുന്നു തിരുവാഭരണം ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഭക്തരും ഷ്ട്രേലീസകാരും ചേർന്ന് സന്നിധാനത്ത് സ്വീകരിക്കും

അതേസമയം കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന മകര നക്ഷത്രവും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന കർപ്പൂര ജ്യോതിയും ഭക്തലക്ഷങ്ങൾക്ക് ദർശന സായൂജ്യമേകും

കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി കൊണ്ടു വന്ന നെയ്യാണ് മകര സംക്രമ അഭിഷേകത്തിന് ഉപയോഗിച്ചത് കഠിനവ്രതം അനുഷ്ഠിച്ച് ദർശന പുണ്യം തേടിയെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഏറെ പ്രാധാന്യമുള്ള മുഹൂർത്തങ്ങളാണ് മകരസംക്രമപൂജയും മകരജ്യോതി ദർശനവും

ജൂഡോയിൽ ഗുജറാത്ത് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവച്ചത്

തമിഴ് പുതുവത്സരദിനമായ ഇന്ന് തമിഴ്നാട് ഉത്സവ പ്രതീതിയിലാണ് വീടുകൾക്ക് മുമ്പിലും തെരുവുകളിലും കോലങ്ങൾ വരക്കുകൃയും കരിമ്പ് മഞ്ഞൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള അലങ്കാരങ്ങളും എവ്വിടേയും കാണാം വിവിധ നേതാക്കൾ തമിഴ് ജനതയ്ക്ക് പൊങ്കൽ ആ്മൂർസ്കൾ നേർന്നു

ജയ്ശങ്കറും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യ മന്ത്രി അബ്ദുൾ അസീസ് കാമിലൊവുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ സന്ദർശിക്കുന്ന ശ്രീ കാമിലോവുമായി ന്യൂഡൽഹിയിലായിരുന്നു കൂടിക്കാഴ്ച ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപ സാധൃതകളും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി

ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും കേന്ദ്ര വിദേശകാരൃവകുപ്പ് സംഘടിപ്പിക്കുന്ന റെയ്സിനാ ഡയലോഗിലും അദ്ദേഹം സംബന്ധിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാളെ ശ്രീ

അമേരിക്കൻ വ്യോമാക്രമണത്തിൽ ഇറാൻ സേനാ കമാൻഡർ മേജർ ജനറൽ സൊലൈമാനി കൊല്ലപ്പെട്ടതും തുടർന്ന് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സംജാതമായ സംഘർഷാവസ്ഥയും ഇരുവരും ചർച്ച ചെയ്തേക്കും

സരസ്വതി അമ്മ തിരുവനന്തപുരത്ത് അന്തരിച്ചു

ശ്രോതാക്കൾക്കിടയിൽ മഹിളാലയം ചേച്ചി എന്ന് അറിയപ്പെട്ടിരുന്ന സരസ്വതി അമ്മ വിദ്യാലയങ്ങളിൽ ആകാശവാണിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഗായകസംഘം രൂപവൽക്കരിക്കുന്നതിന് നേതൃത്വം നൽകി

ആകാശവാണിയിലെ അനുഭവങ്ങളെക്കുറിച്ച് ആകാശത്തിലെ നക്ഷത്രങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതി കരുനാഗപ്പള്ളി തഴവാ സ്വദേശിയാണ്

ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം വെള്ളിയാഴ്ച രാജ്കോട്ടിൽ നടക്കും